നാമനിർദ്ദേശപത്രികകളുടെ സൂക്ഷ്മപരിശോധന ഇന്ന്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ അമരോഹയിലും സഹരൻപൂരിലും രണ്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ജീവചരിത്ര സിനിമയുടെ റിലീസിംഗ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അന്തിമ തീരുമാനമെടുക്കും

ഇന്നലെയായിരുന്നു പത്രികാസമർപ്പണത്തിന്റെ അവസാനതിയതി ഈ മാസം എട്ട് വരെപത്രിക പിൻവലിക്കാം

കേരളത്തിനു പുറമെ ഗുജറാത്ത് ഗോവ ദാദ്രാനഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും ഈ ദിവസം വോട്ടെടുപ്പ് നട്ടിക്കും

ഗോവയിലെ ആകെയുള്ള രണ്ടു മണ്ഡലമായ ദക്ഷിണ ഗോവയിലും ഉത്തരഗോവയിലുമായി ആറ് പേർ പത്രിക നൽകി

തൃശൂരിൽ ആറും കാസർകോട് വടകര ആലത്തൂർ മാവേലിക്കര പത്തനംതിട്ട എന്നിവിടങ്ങളിൽ അഞ്ച് വീതവും കൊല്ലം ഇടുക്കി മണ്ഡലങ്ങളിൽ നാലുവീതവും പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്

ഏറ്റവും കുറവ് ലഭിച്ച ഇടുക്കിയിൽ ഒൻപത് പത്രികകളാണ് ലഭിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയാണ് ഇന്നലെ കേരളത്തിൽ പത്രികസമർപ്പിച്ച് പ്രമുഖൻ

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഗുരുശ്രാമിൽ വാണിജ്യാവശ്യത്തിനുള്ള മൂന്നു കെട്ടിടങ്ങളും രാഹുൽ ഗാന്ധിയുടെ പേരിലുണ്ട്

അതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ അപരന്മാരും രംഗത്തുണ്ട് കോട്ടയം എരുമേലി സ്വദേശിയായ കെ

രാഹുൽ ഗാന്ധി കെ രാഘുൽ ഗാന്ധി കെ ശിവപ്രസാദ് ഗാന്ധി എന്നിവരാണ് രാഹുൽ ഗാന്ധിയുടെ അപരന്മാരായി പത്രിക നൽകിയത്

പിയിലെ സഹരൻപൂർ കൈരാനാ മുസഫർനഗർ ബിജ്ഞ്ഞോർ മീരറ്റ് ബാഗ്പത് ഗാസിയാബാദ് ഗൌതം ബുദ്ധ നഗർ എന്നിവിടങ്ങളിലെ വോട്ടെടുപ്പ്

നരേന്ദ്രമോദിയുടെ യുപിയിലെ രണ്ടാമത്തെ റാലിയാണ് ഇത്

ഡെപ്യൂട്ടി ഇലക്ഷൻ കൃമ്മീഷണർ ചന്ദ്രഭൂഷൺകുമാർ ഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം കൂടാതെ സൈന്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിലൂടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന ആരോപണത്തിന്മേൽ അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

പി ബി ജെ പിയിൽ ചേർന്നു ജഗത്സിങ്പൂർ എം

ജെ പിയിൽ ചേർന്നത്

എം നരേന്ദ്രമോദി എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് സംബന്ധിച്ചുള്ള ഹർജിയിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വാദം കേൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സിനിമയുടെ റിലീസിംഗ് തടയണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസാണ് ഹർജി നൽകിയത് കെട്ടിച്ചമച്ച സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ സിനിമ വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്

ഇന്ന് പുറത്തിറങ്ങാനിരുന്ന ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തിരുന്ന അന്തിമ തീരുമാനം എടുക്കും

രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരെ ശത്രുക്കളായി കാണുന്നതല്ല ബിജെപിയുടെ നയം നാളെ ബിജെപി സ്ഥാപകദിനം ആചരിക്കുന്നതിന് മുന്നോടിയായി എഴുതിയ ബ്ലോഗിലാണ് ശ്രീ അദാനി നിലപാട് വ്യക്തമാക്കിയത് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നതാണ് ശ്രീ അദാനിയുടെ വാക്കുകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു

സംരംഭകത്തിലൂടെ വികസനം സാധ്യമാക്കുകയും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയുമാണ് സംഗമത്തിന്റെ ഉദ്ദേശ്യം ഫെഡറേഷൻ ഓഫ് നേപ്പാളീസ് ചേംമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയും ഇന്ത്യൻ എംബസ്ട്രിയും ഫ്രാഞ്ചൈസ് ഇന്ത്യയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

സൌദിയുടെ സഹായത്തോടെ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന് അമേരിക്ക നൽകുന്ന പിന്തുണ തുടരണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യമാണ് തള്ളപ്പെട്ടത്

കരാറിന്റെ വിശദാംശങ്ങൾ ഒരു മാസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു കരാർ സംബന്ധിച്ച് ഇന്നലെ ട്രംപ് ചൈനീസ് വൈസ് പ്രസിഡന്റ് ല്യൂ ഹീയുമായി വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തി

ബരാമുള്ള ്ജില്ലയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് സന്ദ്പാൽ നിവാസിയായ ഇയാൾ പിടിയിലാകുന്നത് ഇയാളിൽ നിന്ന് ഗ്രനേഡുകളും പൊലീസ് പിടിച്ചെടുത്തു

പൂഞ്ച് സെക്ടറിലെ ഗുൽപൂരിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇന്നലെ വൈകിട്ടാണ് സംഭവം ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു

മലപ്പുറം കോട്ടൂർ സ്വദേശി അബ്ദുൾ കബീറിനെയാണ് തലശ്ശേരി കോടതി ശിക്ഷിച്ച ത്

പെരുമണ്ണ് ശ്രീനാരായ ണ വിലാസം എൽ

ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് പത്തുവർഷം തടവും ഒരു ല ക്ഷം രൂപ പിഴയും എന്ന കണക്കിലാണ് ശിക്ഷ

കളിയുടെ അവസാന മിനിട്ടിൽ വന്ദനയിലൂടെ ഇന്ത്യ അവസാന ഗോളും നേടി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച നടക്കും

എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൺ റൈസേഴ്സ് ഹൈദരാബാദിന് അഞ്ച് വിക്കറ്റ് ജയം ഇതോടെ നാല് മൽസരങ്ങളിൽ നിന്ന് ആറ് പോയിന്റുമായി ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി